ഇന്ത്യാ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ആധാർ ബന്ധിത പണമടയ്ക്കൽ സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കി

കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം

കൂടുതൽ വിവരങ്ങളുമായി തുളസീദാസ്

ലോകത്തെ മൂന്നിൽ രണ്ട് രാജ്യങ്ങളും മരുഭൂവത്കരണത്തിന്റെ പിടിയിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജലദൌർലഭ്യത്തെയും നാം നേരിടണമെന്ന് ശ്രീ

വർധിച്ച ജലവിതരണം ജലം ഭൂമിയിൽ ആഗിരണം ചെയ്യാതെ ഒഴുകിപ്പോകുന്നത് തടയുക മണ്ണിൽ നനവ് നിലനിർത്തുക എന്നിവയെല്ലാം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാലാവസ്ഥ വൃതിയാനം ജൈവ വൈവിധ്യം സംരക്ഷിക്കുക ഭൂമിയുടെ നിലവാരം നഷ്ടമാകുന്നത് പ്രതിരോധിക്കുക എന്നീ വിഷയങ്ങളിൽ രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രശ്നങ്ങളെ നേരിടണം ആഗോള ജലപ്രവർത്തന പദ്ധതിക്ക് യു

ഇതിനായി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ആറ് ബില്യൻ ഡോളർ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്തെ ആഭ്യന്തര ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് പ്രവർത്തിക്കുകയാണെന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി എം

പ്രധാനമന്ത്രി മുദ്ര യോജനയും മറ്റ് പദ്ധതികളും വഴി ചെറുകിട വ്യവസായികൾക്ക് വലിയ ഗുണമുണ്ടായെന്ന് സാമൂഹ്യനീതി ശാക്തീകരണമന്ത്രി തവർചന്ദ് ഗെലോട്ട് പറഞ്ഞു

അടുത്ത അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ അഞ്ച് ട്രിലുൺ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയാക്കി രാജ്യത്തെ മാറ്റുമെന്ന് പാര്ല്ക്മന്റ്റികാര്യമന്ത്രി പ്രഹ്താദ് ജോഷി പനാജിയിൽ പറഞ്ഞു

ഭേദഗതി ചെയ്ത മോട്ടോർ വാഹനനിയമം അപകടങ്ങൾ കുറയ്ക്കുക മാത്രമല്ല ഡ്രൈവർമാരിൽ അച്ചടക്കം കൊണ്ടുവരുമെന്നും ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ബാങ്കുകളുടെ ലയനം സുപ്രധാന തീരുമാനമാണെന്നും യു

ഒരുരാജ്യം ഒരു ഗ്രിഡ് എന്നത് നടപ്പിലാക്കാൻ ഗവൺമെന്റ് പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്രസഹമന്ത്രി ശ്രീ

ഗുവാഹത്തിയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ ജനാധിപത്യ സഖ്യത്തിന്റെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വ നിയമത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഭേദഗതികൾ മേഖലയിലെ തദ്ദേശീയരെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്ക വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമൃത്തിമാർ ഉയർത്തിയിരുന്നു

എന്നാൽ ഒരുതരത്തിലുമുള്ള നുഴഞ്ഞുകയറ്റവും ട്ട് അനധികൃത കുടിയേറ്റവും അനുവദിക്കുകയില്ലെന്നും ശ്രീ അമിത് ഷാ വ്യക്തമാക്കി

താഴ്വരയിൽ ഏതാനും പൊലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രമാണ് ഇപ്പോൾ നിയന്ത്രണമുള്ളത്

മുഹറം പ്രമാണിച്ച് നാളെ ഘോഷയാത്രകൾ ഒന്നും അനുവദിക്കില്ലെന്ന് ഗവൺമെന്റ് അറിയിച്ചു

ടി വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു ന്യൂഡൽഹിയിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഒന്നാം വാർഷിക ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ആധാർ ബന്ധിത പണമടയ്ക്കൽ അദ്ദേഹം സംവിധാനത്തിലൂടെ ഏത് ബാങ്കിന്റെയും ഉപഭേക്താക്കൾക്ക് പോസ്റ്റൽ ശൃംഖലയുടെ ധനകാര്യ സേവനം ഉപയോഗപ്പെടുത്താനാകും

അടുത്ത ഒരുവർഷം കൊണ്ട് ഇത് അഞ്ച് കോടി ഉപഭോക്താക്കളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കരസേന ദക്ഷിണേന്ത്യൻ ക്മാൻഡന്റ് ലഫ്റ്റനന്റ് ജനറൽ എസ്

സൈനി ആണ് ഭൂകരാക്രമണ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് ഗൂജ്റ്റാത്തിലെ സിർ ക്രിക്കിൽ നിന്ന് ഉപേക്ഷിച്ച ബോട്ടുകൾ കണ്ടെത്തിയെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായും സൈന്യം വ്യക്തമാക്കി കേരളത്തിലും ജാഗ്രത നിർദ്ദേശമുണ്ട്

ബസ്സ് സ്റ്റാന്റുകൾ റെയിൽവെ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നി വിടങ്ങളിലും ജനങ്ങൾ കൂടുന്ന മറ്റ് സ്ഥലങ്ങളിലും ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ജനത്തിരക്ക് വർധിക്കുന്ന സ്ഥലങ്ങളിലും ആഘോഷവേദികൾക്കു സമീപവും കർശന സുരക്ഷ ഏർപ്പെടുത്തും

തിരവോണം സമൃദ്ധമായി ആഘോഷിക്കാൻ പൂക്കളും പച്ചക്കറികളും മറ്റ് വിഭവങ്ങളും തത്രപാടിലാണ് കേരളീയർ

സംസ്ഥാന ഗവൺക്റ്റിന്റെയും ടൂറിസം വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വിവിധ മേളക്ടളും സംഘടിപ്പിച്ചിട്ടുണ്ട്

നാളെ പൂലർച്ചെ നടക്കുന്ന അഷ്ടദ്രവൃ മഹാഗണപതി ഹോമത്തോടെ ഓണക്കാല പൂജകൾക്ക് തുടക്കമാകും

ആഗോള സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും മുൻനിര വക്താക്കളായി പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി